കോൺഗ്രസ്സ് നേതാവും ലോകസഭാംഗവുമായ എം ഐ ന് ഷാനവാസ് അന്തരിച്ചു

ഇന്ന് ബ്രിസ്ബെയ്നിൽ

ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബേസിക് കാലാവസ്ഥ വൃതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പറ്റി യോഗത്തിൽ അധൃക്ഷത വഹിച്ച കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ സംസാരിച്ചു

ഇതു സംബന്ധിച്ച കരാറിൽ കേന്ദ്രവും ജാർഖണ്ഡ് ഗ്വൺമെന്റും ലോകബാങ്കുമായി ഒപ്പു വച്ചു പ്രസ്മൃധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി എത്തിക്കുകയാണ് ലക്ഷ്യം കേന്ദ്ര സാമ്പത്തിക കാര്യ സെക്രട്ട്റി സ്മീർകുമാർ ഖാരെയുടെ സാന്നിദ്ധ്യത്തിൽ ന്യൂഏൽഹിയിൽ ഇന്നലെയാണ് കരാർ ഒപ്പു വച്ചത് അത്യാധുനിക സ്സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വൈദ്യുതി ശൃംഖല ഒരുക്കാനും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്

നാലു ദിവസം രാഷ്ട്രപതി ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രഥമ ഓസ്ട്രേലിയൻ സന്ദർശനമാണിത് ഓസ്ട്രേലിയയിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി രാംനാഥ് കോവിന്ദ് ഉഭയകക്ഷി ചർച്ച നടത്തും

സിഡ്നിയിൽ രാഷ്ട്രപതിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും

ഒന്നര ലക്ഷത്തോളം സുരക്ഷാ ജീവനക്കാരെയാണ് ത്രെഞ്ഞെടുപ്പ് ചുമതലകൾക്കായി നിയോഗിച്ചിരുന്നത്

രാജ്യത്തെ മുസ്തീം സഹോദരീ സഹോദരൻമാർക്കും മറ്റുള്ളവർക്കും ശുഭാശംസ നേരുന്നതായി രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു നബിയുടെ വചനങ്ങൾ സമാധാനത്തിനും സാഹോദരൃത്തിനും മാർഗ്ഗദീപമായിരിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

പ്രാർത്ഥനയുടെയും മന്ത്രോച്ചാരണത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ക്ഷേത്രം അടച്ചത് ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു

പരിപാടിയുടെ അൻപതാം പതിപ്പാണിത് മൻ കി ബ്രാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ശ്രീ മോദി പൊതുജനങ്ങളുമായി സംവദിച്ചു വരികയാണ് ആരോഗൃ സംരക്ഷണത്തിന് യോഗയുടെ പ്രാധാന്യത്തെകുറിച്ച് മൻ കി ബാത്തിന്റെ നിരവധി പ്രഭാഷണങ്ങളിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്

ചെന്നൈയിലെ സ്വകാരൃ ആശുപത്രിയിൽ പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അ ന്തൃം

സി സി വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി പ്രിയ

ഷാനവാസിനെ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു

ഭൌതിക ശരീരം ഇന്ന് ഉച്ചയോടെ ചെന്നൈയിൽനിന്ന് വിമാനമാർഗ്ഗം എറണാകുളത്തെ വസതിയിൽ എത്തിക്കും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 കെ എസ് യുവിലൂടെയാണ് ഷാനവാസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്

നിരുവധി തവണ നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്

എഫ് സംഘം ഇന്ന് രാവിലെ ഗവർണറെ കാണും

കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കി ഗവൺമെന്റിനു നിർദ്ദേശങ്ങൾ നൽകുമെന്ന് കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമനിക് പറഞ്ഞു പമ്പയിലെയും നിലയ്ക്കലിലെയും സൌകര്യങ്ങൾ കമ്മീഷൻ വിലയിരുത്തി

ഷാജി കരുൺ സംവിധാനം ചെയ്ത ഓൾ ആണ് കഥാവിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം കഥേതര വിഭാഗത്തിൽ ആദിത്യ സുഹൃസ്പ് ജംഭാലെ സംവിധാനം ചെയ്ത ഖർവാസ് പ്രദർശിപ്പിക്കും

എം ഗോൾഡിൽ കേൾക്കാം

ചാവേർ ബോംബാക്രമണമെന്നു സംശയിക്കുന്നതായി അഫ്ഗാൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു സ്ഫോടനത്തിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല കാബൂളിൽ സാധാരണ ജനങ്ങൾക്കെതിരെ ഐ

ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ശിൽപശാല ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടക്കും ശുചിത്വം മാലിന്യ സംസ്ക്കരണം കൃഷി ജലസംരക്ഷണം ഹരിത പ്രോട്ടോക്കോൾ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ദ്ധർ പങ്കെടുക്കും

വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത്

പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

ആലുവ ചെപ്പള്ളി വൈറ്റില പേട്ട തൃപ്പുണ്ണിത്തറ എസ് എൻ എന്നീ ജംഗ്ഷനുകളുടെ വികസനത്തിനും സഹോദരൻ അയ്യപ്പൻ റോഡിന്റെ വികസനത്തിനുമാണ് ഫണ്ട് ലഭൃമാക്കുക

രണ്ടു ദിവസങ്ങളിലായി കൊച്ചി മെട്രോ അധികൃതരുമായി ചർച്ചയെ തുടർന്നാണ് ഫ്രഞ്ച് ഏജൻസി ധനസഹായ വാഗ്ദാനം അറിയിച്ചത്